സഹായകമാകുന്ന വെർച്ചൽ ആഗോള നിക്ഷേപക വട്ടമേശ സമ്മേളനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ധ്യക്ഷത വഹിക്കും

ബിഹാർ നിയമസഭാ ്തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ട ന് വോട്ടെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും

ബൈഡൻ മുന്നേറുന്നു അന്തിമഫലം വൈകിട്ടോടെ പുറത്തുവരുമെന്ന് റിപ്പോർട്ട്

ഇന്ത്യൻസും ഡൽഹി ക്യാപ്പിറ്റൽസും നേർക്കുനേർ

രാജ്യത്തെ അന്താരാഷ്ട്ര നിക്ഷേപക വളർച്ച ത്രിതപ്പെടുത്താൻ സമ്മേളനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ വൈകുന്നേരം ആറു മണിക്കാണ് പരിപാടി ആറ് ട്രില്ല്യൺ ഡോളർ ആസ്തിയുള്ള ലോകത്തിലെ ഏറ്റവും വലിയ പെൻഷൻ സോവറിൻ വെൽത്ത് ഫണ്ടുകളിൽ നിന്നുള്ള പ്രതിനിധികൾ വെർചൽ വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുക്കും

എസ് യൂറോപ്പ് കാനഡ കൊറിയ ജപ്പാൻ മധ്യേഷ്യ ഓസ്ട്രേലിയ സിംഗിപ്പൂർ എന്നീ മേഖലകളെ പ്രതിനിധാനം ചെയ്തുള്ള നിക്ഷേപ്പകർക്ക് പുറമെ ഇന്ത്യൻ നിക്ഷേപകരും സമ്മേളനത്തിൽ സംബന്ധിക്കും ഇന്ത്യയുടെ സാമ്പത്തിക നിക്ഷേപ കാഴ്ച്ചപ്പാട് ്ഘടനാപരമായ പരിഷ്കാരങ്ങൾ അഞ്ച് ട്രില്ല്യൺ ഡോളർ സമ്പദ് വൃവസ്ഥ കൈവരിക്കുന്നതിൽ ഗവണ്മെന്റിന്റെ കാഴ്ചപ്പാട്ട് തുടങ്ങിയവ സമ്മേളനം ചർച്ച ചെയ്യും ഇന്ത്യയിലെ അന്താരാഷ്ട്ര നിക്ഷേപ വളർച്ച വർദ്ധിപ്പിക്കാനും സമ്മേളനം വഴിയൊരുക്കും ഇന്ത്യയിൽ നിക്ഷേപം നടത്താൻ ആഗ്രഹിക്കുന്ന കമ്പനികൾക്ക് തദ്ദേശീയവൃവസായ പ്രമുഖരോട് ബന്ധം സ്ഥാപിക്കാനുള്ള അവസരവുമാണ് സമ്മേളനം

ഉഭയകക്ഷി വിഷയങ്ങളും മേഖലയിലും ആഗോളതലത്തിലും പരസ്പര താൽപര്യമുള്ള പ്രശ്നങ്ങളെപ്പറ്റിയും കൂടിക്കാഴ്ചയിൽ ഇരു നേതാക്കളും സംവദിക്കും നിരവധി കരാറുകൾക്കും ധാരണാപത്രങ്ങൾക്കും കൂടിക്കാഴ്ചയിൽ അന്തിമ രൂപം കൊടുക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്

ഡൽഹി കേരളം മഹാരാഷ്ട്ര പശ്ചിമബംഗാൾ ആന്ധ്രാപ്രദേശ് കർണാടക എന്നിവിടങ്ങളിലാണ് പ്രതിദിന രോഗ സ്ഥിരീകരണം കൂടുതൽ

വാൽമീകി നഗർ ലോക്സഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പും ഇതിനൊപ്പം നടക്കും പരമാവധി വോട്ടുകൾ നേടിയെടുക്കാനുള്ള അവസാനവട്ട ശ്രമത്തിലാണ് ബിജെപി ആർ

ഡി കോൺഗ്രസ്സ് തുടങ്ങിയ വിവിധ പാർട്ടികളുടെ നേതാക്കൾ

സംസ്ഥാനത്തെ വിനോദ്യാമേഖലയിലെ വ്യവസായികളുടെ നിരന്തര ആവശ്യപ്രകാരമാണ് എട്ടു മാസങ്ങൾക്ക് ശേഷം തീയേറ്ററുകൾ തുറക്കാൻ സർക്കാർ തീരുമാനിച്ചത് നീന്തൽ കുളങ്ങൾ യോഗ കേന്ദ്രങ്ങൾ കായിക പരിശീലന കേന്ദ്രങ്ങൾ എന്നിവയും കോവിഡ് പ്രതിരോധ മാനദണ്ഡങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് മുതൽ തുറന്നു പ്രവർത്തിക്കാൻ മഹാരാഷ്ട്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട്

എസ് ആർ

ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പെയ്സ് സെന്ററിലാണ് ദൌത്യം

കാർഷിക വന ദുരന്തനിവാരണ മേഖലകളിലെ പ്രവർത്തനങ്ങൾക്കാണ് ഉപഗ്രഹം സഹായകമാവുക

ഇനിയും അന്തിമ ഫലം അറിഞ്ഞിട്ടില്ലാത്ത പെൻസിൽവാനിയ നോർത്ത് കരോളിന ജോർജിയ അരിസോണ എന്നിവിടങ്ങളിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ് നടക്കുന്നത്

നെൽകൃഷി ചെയ്യാവുന്ന വയലുകൾ രൂപമാറ്റം വരുത്താതെ സംരക്ഷിക്കുകയും കൃഷിക്കായി ഉപയുക്തമാക്കുകയും ചെയ്യുന്ന ഉടമകൾക്കാണ് റോയൽറ്റി അനുവദിച്ചത് നിലവിൽ നെൽകൃഷി ചെയ്യുന്ന ഭൂമിയുടെ ഉടമകളും നെൽവയലുകളുടെ അടിസ്ഥാന സ്വഭാവ വൃതിയാനം വരുത്താതെ പയർ വർഗ്ഗങ്ങൾ പച്ചക്കറികൾ എള്ള് നിലക്കടല തുടങ്ങിയ ഹ്രസ്വകാല വിളകൾ കൃഷി ചെയ്യുന്ന നിലം ഉടമകളും റോയൽറ്റിക്ക് അർഹരാണ്

എല്ലിൽ ഇന്ന് നടക്കുന്ന ആദ്യ പ്ളേ ഓഫ് മത്സരത്തിൽ നിലവിലെ ചാമ്പൃന്മാരായ മുംബൈ ഇന്തൃൻസ് ഡൽഹി ക്യാപ്പിറ്റൽസിനെ നേരിടും

നിലവിലുള്ള സംരക്ഷിതാദ്ധ്യാപകരെ പൂർണ്ണമായും മാനേജ്മെന്റ് ഒഴിവുകളിലേയ്ക്ക് നിയമിക്കാമെന്ന ഉറപ്പിമേലാണ് നടപടി

ബിഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിക്കുന്ന പരിപാടി കൊവിഡ് സാഹചര്യത്തിലെ മികച്ച വോട്ടിംഗ് ക്രമീകരണങ്ങൾ സന്ദർശക രാജൃങ്ങൾക്ക് പരിചയപ്പെടുത്തും

സമരാനുക്കൂലികൾ റെയിൽവേ ട്രാക്ക് ഉപരോധിക്കുന്നതിനാൽ ഡൽഹ്യി മുംബൈ ട്രെയിൻ ഗതാഗതം ഇന്നും തടസ്സപ്പെട്ടു ജയ്പ്ടൂരിലെ ചില താലൂക്കുകളിലും അഞ്ച് കിഴക്കൻ ജില്ലകളിലും ഇന്റർനെറ്റ് സേവനം റദ്ദാക്കിയിരിക്കുകയാണ്

പൂങ്കുഴലി

സംഘത്തിലുണ്ടായിരുന്ന ആരെയും തിരിച്ചറിഞ്ഞിട്ടില്ലെന്നും നിലവിൽ ആരും കസ്റ്റഡിയിൽ ഇല്ലെന്നൂം സംഭവം നടന്ന സ്ഥലത്ത് നിന്നും രക്ത സാമ്പിൾ പരിശോധിക്കുന്നു്ണ്ടെന്നും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു

വായുഗുണനിലവാരവും കാലാവസ്ഥ പ്രവചനവും കണക്കാക്കുന്ന സ്ഥാപനമായ സഫർ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് നഗരത്തിലെ വായുഗുണനിലവാരം മോശമായതായി ചൂണ്ടിക്കാട്ടിയത്